സ്മരണയിൽ രാഷ്ട്രം ഇന്ന് ഏകതാ ദിനം ആഘോഷി ക്കുന്നു രാജ്യത്തെ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെവാഡിയയിൽ നേതൃത്വം നൽകും

ജയം ഇന്ന് രണ്ട് മത്സരങ്ങൾ

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ കെവാഡിയയിൽ രാജ്യത്തെ ഏകതാ ദിന ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും

കേരളത്തിൽ ഫിപ്പിക് സർക്കാർ സ്ഥാപനങ്ങളിലും ജില്ലാ ആസ്ക്ട്രിന്ങ്ങളിലും സെക്രട്ടറിയേറ്റ് ദർബാർ ഹാളിലും രാഷ്ട്രീയു ഏക്താ ദിന പ്രതിജ്ഞ ചൊല്ലും

ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന പട്ടേൽ രാജ്യത്തെ ഏകീകരിക്കു ന്നതിൽ നിർണ്ണായക പങ്ക് വഹിച്ചിരുന്നു ഇന്തൃയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആദ്യ ആഭ്യന്തര മന്ത്രിയും ആയിരുന്നു അദ്ദേഹം സ്വാതന്ത്യ സമരത്തിൽ ഉൾപ്പെടെയുള്ള പട്ടേലിന്റെ സുപ്രധാന സംഭാവനകൾ പരിഗണിച്ചാണ് ഏകതാ ദിവസ് ആചരിക്കുന്നത്

ഗുജറാത്തിലെ കെവാഡിയയിൽ ഏകതാ പ്രതിമയിൽ നടക്കുന്ന ഏകതാ പരേഡിലും പ്രധാനമന്ത്രി പങ്കെടുക്കും കെവാഡിയയിലെ ഏകതാ പ്രതിമയും സബർമതി നദീതീരവുമായി ബന്ധിപ്പിക്കുന്ന സീ പ്ലെയിൻ സർവ്വീസും പ്രധാനമന്ത്രി ഇന്ന് രാജൃത്തിന് സമർപ്പിക്കും സിവിൽ സർവ്വീസ് ട്രെയിനികളുമായി ശ്രീ മോദി വീഡിയോ കോൺഫറൻസിംഗി ലൂടെ ആശയവിനിമയം നടത്തും ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെ ഗുജറാത്തിൽ എത്തിയ ശ്രീ നരേന്ദ്ര മോദി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ന്യൂനപക്ഷ കാര്യമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി അധൃക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിദേശകാരൃ സഹമന്ത്രി വി

ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദൃ പാദത്തിൽ ഫ്രാൻസിലെത്തിയ അദ്ദേഹം ഫ്രഞ്ച് ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഫ്രഞ്ച് വിദേശകാര്യസെക്രട്ടറി ഫ്രാങ്കോയിസ് ഡെലാട്രയുമായി നടത്തിയ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സഹകരണം പ്രധാന വിഷയമായി ഉരു രാജ്യങ്ങളും തമ്മിൽ തുടരുന്ന ശക്തവും ഗാഢവുമായ ബന്ധത്തിന്റെ തെളിവാണ് ഇന്നലെ നടന്ന ചർച്ചകളെന്ന് ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി ട്വിറ്ററിൽ കുറിച്ചു ഫ്രാൻസ് അന്താരാഷ്ട്ര നയരൂപീകരണ വിഭാഗം തലവനുമായും ശ്രീ

ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര സൂരക്ഷ പ്രതിരോധ സഹകരണം പ്രാദേശിക സുരക്ഷാ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ആലീസ് ഗ്യൂട്ടനുമായുള്ള കൂടിക്കാഴ്ചയ്യിൽ ചർച്ച ചെയ്തു മൂന്നാഴ്ച നീളുന്ന യൂറോപ്യൻ സ്കന്ദർൾന്ത്തിൽ ഫ്രാൻസിന് ശേഷം ജർമ്മനിയും ബ്രിട്ടനും വിദ്ദേശകാരൃ സെക്രട്ടറി സന്ദർശിക്കും

ന്യൂഡൽഹിയിൽ ഇന്നലെ മാധൃമങ്ങളുമായി നടത്തിയ വെർചൽ കൂടിക്കാഴ്ചയിലാ ണ് കേന്ദ്രമന്ത്രി ഇക്കാരൃം വൃക്തമാക്കിയത്

ഡി എ യുടെയും മഹാസഖ്യത്തിന്റെയും നേതാക്കൾ പ്രചാരണത്തിൽ സജീവമായി മൂന്നാം ഘട്ടത്തിന്റെ പ്രചാരണവും സജീവമായി മുന്നോട്ടു പ്ലോപ്പുകയാണ്

അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വീണ്ടും വർധന

വിവിധ സ്ഥലങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ലോക്ഡൌണിലേക്ക് നീങ്ങുകയാണ് ബ്രിട്ടണിൽ നിന്നും എൻ

നിരവധിപ്പേർ ഇപ്പോഴും കെട്ടിടാവൃശ്ലിഷ്ടങ്ങൾ ക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷ്യാപ്രവർത്തനം പുരോഗമിക്കുക യാണ്

ഗ്രീക്ക് ദ്വീപായ സമോസിലെ തുറമുഖത്ത് ചെറിയ സുനാമി ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്

എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ ഏഴു വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തി

പരാജയപ്പെട്ടാൽ പുറത്താകുമായിരുന്ന രാജസ്ഥാൻ ഇതോടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കി ഐ